വികസിപ്പിക്കാൻ സി

കേരളത്തിൽ വാളയാർ കേസിൽ പ്രതികൾ രക്ഷപ്പെടാൻ ഇടയായ സംഭവത്തിൽ ജൂഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു

ഇന്ന് തുടക്കം

സ്ഥിതിവിവര കണക്കുകളും നടപടിക്രമങ്ങളും മാത്രമായി സി എ ജി പരിമിതപ്പെടരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂഡൽഹിയിൽ അക്കൌണ്ടന്റ് ജനറൽമാരുടെയും ഡെപ്യൂട്ടി അക്കൌണ്ടന്റ് ജനറൽമാരുടെയും യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് ഏജൻസികളുടെ പ്രതിച്ഛായയായി സി എ ജി വർത്തിക്കുകയും അവരുടെ പരിമിതികൾ തുറന്നുകാട്ടുകയും വേണം ഇന്ത്യ അതിവേഗം അഞ്ച് ട്രില്യൺ ഡോളർ വളർച്ചയുള്ള സമ്പദ് വ്യവസ്ഥയായി മാറുകയാണെന്നും സി

ജി മാർക്കും ഇതിൽ പ്രമുഖ പങ്കാണ് വഹിക്കാനുള്ളതെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് സി

ജി എഥനോൾ തുടങ്ങിയ ശുദ്ധ്മായ് ഇന്ധനങ്ങൾ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുമെന്ന് ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു

വിശദാംശങ്ങളുമായി ഷീജ ഗണേശ്

രാജ്യത്തെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഗ്രാമപഞ്ചായത്തുകൾക്ക് ബ്രോഡ് ബാന്റും ഇന്റർനെറ്റ് സൌകര്യവും ലഭ്യമാക്കുന്നതിനായി ഘട്ടം ഘട്ടമായി ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മഹാരാഷ്ട്രയിൽ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു ശിവസേന അധ്യക്ഷൻ ഉദ്ദവ് താക്കറേയും മകൻ ആദിത്യ താക്കറേയും എൻസിപി അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി ഇന്നലെ പവാർ ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷമായിരുന്നു കൂടിക്കാഴ്ച ഡൽഹി കേന്ദ്രീകരിച്ചു നടന്ന ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയും ശിവസേന എൻസിപി കോൺഗ്രസ് സഖ്യ ഗവൺമെന്റിന് അംഗീകാരം നൽകി ചർച്ചകൾ ഏക മനസോടെയാണ് പൂർത്തിയാക്കിയതെന്ന് കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ പറഞ്ഞു ഇന്ന് കോൺഗ്രസും എൻസിപിയും ശിവസേനയുമെല്ലാം മുംബൈയിൽ പ്രത്യേകം യോഗങ്ങൾ ചേരുന്നുണ്ട്

സിങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൂന്ന് ദീഷ്സമാണ് മഹാരാഷ്ട്രയിൽ സന്ദർശനം നടത്തുന്നത്

ഇവരെ അപായമില്ലാതെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടതായും വിദേശകാര്യവക്താവ് ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പ്രശാന്ത് വെയിൻദാം ധാരിലാൽ എന്നിവരുടെ പെട്ടെന്നുള്ള അറസ്റ്റ് അപ്രതീക്ഷിതമെന്നും അവർ അതിർത്തി കടന്നത് അശ്രദ്ധമായാണെന്ന് പാകിസ്ഥാനെ അറിയിച്ചിരുന്നതായും രവീഷ് കുമാർ പറഞ്ഞു പാകിസ്ഥാൻ പ്രചാരണത്തിന്റെ ഇരകളാവില്ല അറസ്റ്റിലായ ഇന്ത്യാക്കാരെന്ന് പ്രതീക്ഷിക്കുന്നതായും ശ്രീ

കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കർത്താപ്പൂർ ഇടനാഴി ഉപയോഗിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതായി അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പാക് നയതന്ത്ര കരാറിന്റെ ഭാഗമായുള്ള തുടർചർച്ചകൾ ഇരു രാജ്യങ്ങളും നടത്തുമെന്ന് ശ്രീ രവീഷ് കുമാർ കൂട്ടിച്ചേർത്തു

പൂഞ്ച് രജൌരി ജില്ലകൾക്കായി രജൌരി സ്പോർട്സ് സ്റ്റേഡ്ടിയത്തിലാണ് ഇന്നലെ മുതൽ റാലി ആരംഭിച്ചത്

റിക്രൂട്ട്മെന്റ് റാലിയിൽ യുവാക്കൾ കൂടുതലായി എത്തുന്നതിൽ സന്തോഷമുണ്ടെന്ന് ബി

എഫ് ജമ്മു ഡി ഐ

അതേസമയം കാർഷികാവശിഷ്ടങ്ങൾ കുറഞ്ഞ ചെലവിൽ പുനരുപയോഗിക്കുക എന്ന ആശയവുമായി പിലിഭിത്ത് ജില്ലയിലെ ഭരണകൂടം മുന്നോട്ട് വന്നു ഇന്ത്യൻ അഗ്രിക്കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞരാണ് ഈ പുനരുപയോഗ ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തതെന്ന് ആകാശവാണി ലേഖകൻ അറിയിക്കുന്നു അഞ്ച് രൂപ മാത്രം വില വരുന്ന ഈ ഉൽപ്പന്നത്തിൽ പ്രത്യേക ജൈവ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്

തദ്ദേശീയരായ ജനതയുടെ താൽപര്യം സംരക്ഷിച്ചാണ് നയത്തിന് രൂപം നൽകിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഭൂമി അനുവദിക്കുന്നതിന്റെയും കൈവശാവകാശം നൽകുന്നതിന്റെയും പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരമാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

ആകാശവാണിയുടെ എല്ലാ ശൃംഖലകളിലൂടെയും ദൂരദർശൻ ചാനലിലൂടെയും പരിപാടി കേൾക്കാം

പരിഭാഷ ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ആകാശവാണി നിലയങ്ങൾ പുനഃപ്രക്ഷേപണം ചെയ്യും

സമ്പന്നരായ വ്യവസായികളിൽ നിന്നും ഉണ്ത്ന്യാഹു പാരിതോഷികങ്ങൾ സ്വീകരിച്ചതായും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്മിച്ചതായും ആരോപണമുണ്ട്

താൻ രാജി വയ്ക്കില്ലെന്നും നിയമപരമായി അത് ചെയ്യാൻ ബാദ്ധ്യസ്ഥനല്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ സത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്നും കുറ്റാന്വേഷകരെ തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദുഃഖത്തോടെയാണ് താൻ ഈ തീരുമാനമെടുത്തതെന്നും ഇസ്രയേലിൽ ആരും നിയമത്തിന് അതീതരല്ല എന്നും അറ്റോർണി ജനറൽ അവിചായ് മണ്ടേബ്ലിറ്റ് വ്യക്തമാക്കി ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയ്ക്കിടെയാണ് ഇസ്രയേൽ അറ്റോർണി ജനറലിന്റെ പ്രഖ്യാപനം

കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന മൽസരം ആദ്യത്തെ പകൽ രാത്രി മൽസരമാണ്

ബംഗ്ലാദേശ് പ്രധാനമന്ത്രി് ഷെയ്ഖ് ഹസീന ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി എന്നിവർ മൽസരം കാണാൻ എത്തും ഇരു രാജ്യങ്ങളും ആദ്യമായാണ് പിങ്ക് ബോൾ മത്സരം കളിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുൻ ജഡ്ജി പി

പോലീസിന്റെയും പ്രോസീക്യൂഷന്റെയും വീഴ്ച പ്രതികൾ കുറ്റവിമുക്തരാകാനിടയായ സാഹച്ചിര്യർ ്എന്നിവ കമ്മീഷൻ അന്വേഷിക്കും

കേസിലെ പ്രതിക്ൾക്ക് നോട്ടീസ് അയയ്ക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി

കർഷക ക്ഷേമനിധി കേരള മെട്രോ പൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ബില്ലുകളാണ് അവസാന ദിവസമായ ഇന്നലെ പാസ്സാക്കിയത്